ബൂത്തിലേക്ക്

വർദ്ധിച്ചുവരുന്നതീയി ആരോഗൃ മന്ത്രാലയം

അൽപസമയത്തിനകം പൂനെയിൽ ആരംഭിക്കും

ധാക്കയിലെ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന പ്രധാനമന്ത്രിയെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്വാഗതം ചെയ്തു

ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലെ ധീരരക്തസാക്ഷികൾക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം ബംഗ്ലാദേശിൽ എത്തിയത്

ഇന്ന് ധാക്ക്യിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കൂണ്ണ് പ്രധാനമന്ത്രി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന്ദിയൂമായും പ്രസിഡന്റ് അബ്ദുൽ ഹമീദുമായും കൂടിക്കാഴ്ച ൂന്ട്ത്തും

തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി

എല്ലാ തയ്യാറെടുപ്പുകളും സംസ്ഥാനത്ത് പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു സുരക്ഷയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അതിർത്തികളിൽ ഉൾപ്പെടെ നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളിലും ് രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം തുടരുകയാണ് കേരളത്തിനൊപ്പം ഏപ്രിൽ ആറിന് വോട്ടെടുപ്പ് നട ക്കുന്ന തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പ്രചാരണം ശക്തമായി പുരോഗമിക്കുന്നു കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്

വോട്ടിങ് മെഷീനുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതിനായി വോട്ടർമാർക്ക് കൈയ്യുറകൾ നൽകാൻ നിർദ്ദേശമുണ്ട് ന്യൂസ് ഡസ്ക് ആകാശവാണി

ഡി എ യുടെ പ്രചാരണത്തിനായി അടുത്ത മാസം രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തും ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ ജെ

എഫിന്റെ രണ്ടാം ഘട്ട പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ രാഹുൽഗാന്ധി ഇപ്പോൾ പാലക്കാട് പ്രചാരണം തുടരുകയാണ്

എഫിന്റെ പ്രചാരണത്തിന് കരുത്തേകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് മൂന്ന് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും

ഇതാദൃമായാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു സംവിധാനം ക്രമീകരിക്കുന്ന പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പേപ്പർ കവറിനുള്ളിലാക്കി ഒട്ടിച്ച് ഉദ്യോഗസ്ഥർരെ തിരികെ ഏൽപ്പിക്കണം വോട്ട് ചെയ്യൽ ഒഴികെയുള്ള നടപടിക്രമങ്ങൾ വീഡിയോയിൽ ചിത്രീകരിക്കും

സന്ദർശനത്തിനെത്തിയ ്ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു

രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചുവരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും

കെട്ടിടത്തിൽ കൂടുങ്ങിയ ആറ് പേരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മുംബൈ മേയർ അറിയിച്ചു

ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യൂണിയൻ പബ്ലാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്ബിഐ ഐഡിബിഐ കാനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് സ്കെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കുകളാണ് പരാതി നൽകിയത്

പരാതിയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം

ആയിരം തിരകളുള്ള അഞ്ച് എ

അറബിക്കടലിൽ ഒരു വിദേശ ബോട്ടിൽ മയക്കുമരുന്നു കടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നു നടത്തിയ തെരച്ചിലിലാണ് മിനിക്കോയ് ദ്വീപിനു സമീപം ബോട്ടുകൾ കണ്ടെത്തിയത്

മൂന്നാം മത്സരം ഞായറാഴ്ച നടക്കും

ഇന്തൃക്കാരാണ് കപ്പലിലെ തൊഴിലാളികൾ ഇവർ എല്ലാവരും തന്നെ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു

സിൻജിയാങ് പ്രവിശ്യയിലെ മനുഷ്യാവകാശ ലംഘനത്തെ തുടർന്ന് ചൈനയ്ക്ക് മേൽ യു കെ ഏർപ്പെടുത്തിയ ഉപരോധത്തിന് മറുപടിയായാണ് ഈ നടപടി ഉയ്ഗുർസിലെ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ വിദേശകാരൃ മന്ത്രിമാർ തിങ്കളാഴ്ച നാല് ചൈനീസ് ഉദ്യോഗസ്ഥർക്കും ഒരു സ്ഥാപനത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു

ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സ്ഥിതി ആയ തിനാൽ സഖ്യസാധൃതകളാണ് നേതാക്കൾക്ക് മുന്നിലുള്ളത്